പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ മറ്റന്നാൾ സർവ്വകക്ഷി യോഗം വിളി ച്ചു പുതിയ വ്യവസായങ്ങൾക്ക് കാലതാമസമില്ലാതെ അനുമതി നൽകാൻ ഓൺലൈൻ സംവിധാനം ആരംഭിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു ദിവസത്തെ സന്ദർശനത്തിന് നാളെ കൊച്ചിയിലെത്തും

ദേശീയ പൊലീസ് ഫുട്ബോൾ ടൂർണമെന്റ് വൈകിട്ട് മല പ്പുറത്ത് ഉദ്ഘാടനം ചെയ്യും

മുൻ മന്ത്രി മാത്യു

തോമസ് നന്ദി പ്രമേയം അവതരിപ്പിക്കും രണ്ടുദിവസ മാണ് നന്ദി പ്രമേയ ചർച്ചു

നേരത്തെ ഫെബ്രുവരി ഏഴുവരെയായിരുന്നു നിയമസഭ സമ്മേളി ക്കാൻ തീരുമാനിച്ചിരുന്നത് സഹകരണ ഭേദഗതി ബിൽ പാസ്റ്റാക്കുന്നതിന് വേണ്ടിയാണ് തീയതി നീട്ടിയത് നാളെ സഭ ചേരില്ല പകരം ഫെബ്രുവരി ഒന്നിന് സഭാ സമ്മേളന മുണ്ടാകും വ്യാഴാഴ്ചയാണ് ബജറ്റ് അവതരണം ഏറ്റുമാനൂർ ഐ ടി ഐ കാമ്പസിൽ പ്രധാനമന്ത്രിയുടെ സ്കിൽ ഇന്ത്യ പ്രദ്ധതി പ്രകാരം നൈപുണ്യ വികസന കേന്ദ്ര ത്തിന്റെ നിർമ്മാണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്തു കൊച്ചിയിൽ ബി

സി

ടി ഐക്കാർക്കും സാങ്കേതിക വിദ്യാഭ്യാസം നേടിയവർക്കും തൊഴിൽശേഷി വികസിപ്പി ക്കാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത് ജന്മഭൂമിയുടെ ഒ രാജഗോപാൽ നവതി പതിപ്പ് രാജസൂയം തൃശൂരിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു

രാജഗോ പാലിന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നി വയടങ്ങിയ പ്രത്യേക പതിപ്പാണ് രാജസൂയം പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മറ്റ ന്നാൾ ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ സർവ്വ കക്ഷി യോഗം വിളിച്ചു സഭയുടെ സുഗമമായ പ്രവർത്തന ത്തിന് എല്ലാ പാർട്ടികളുടെയും സഹകരണം തേടിയാണ് യോഗം

ഫെബ്രുവരി ഒന്നിന് ഇടക്കാല കേന്ദ്രബജറ്റ് അവതരിപ്പിക്കും

പുതിയ വ്യവസായങ്ങൾക്ക് കാലതാമസമില്ലാതെ അനുമതി നൽകുന്നതിന് ഓൺലൈൻ സംവിധാനം ആരംഭിക്കുമെന്ന് മന്ത്രി ഇ

കണ്ണൂർ ഇരിണാവിൽ താപനിലയത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് വൈദ്യുതിവാഹന വൃവസായശാല തുടങ്ങാൻ ഗവൺമെന്റ് ആലോചിച്ച് വരുകയാണെന്ന് അദ്ദേഹം പറ ഞ്ഞു

കണ്ണൂ രിൽ പ്രസ്ക്ലബ്ബും ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച വ്യവസായ സെമിനാർ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി പൊലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോണിനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന പൊലീസ് മേധാവിക്ക് കൈമാറിയേക്കും റെയ്ഡിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന സി

എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ പരാതിയിലാണ് വകുപ്പ് തല അന്വേഷണം

ജി പി മനോജ് എബ്രഹാം ഇന്നലെ ഇതേപ്പറ്റി അന്വേഷണം ആരംഭിച്ചിരുന്നു ചൈത്ര തെരേസ ജോണിനെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം നടത്തിയതിന്റെ പേരിൽ സ്ഥലം മാറ്റിയ നടപടി ജനാധിപത്യ വിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് കെ

സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി ഭരണക ക്ഷിയുടെ പാർട്ടി ഓഫീസ് പരിശോധിച്ചതിന്റെ പേരിൽ വനിതാ പൊലീസ് ഓഫീസറെ സ്ഥലം മാറ്റിയത് സി

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു ദിവസത്തെ സന്ദർശനത്തിന് നാളെ കൊച്ചിയിലെത്തും മറൈൻ ഡ്രൈവിൽ ഉച്ചകഴിഞ്ഞ് സംഘടിപ്പിക്കുന്ന നേതൃസംഗമത്തിൽ അദ്ദേഹം സംസാരിക്കും ഉച്ചയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന രാഹുൽ ഗാന്ധി അന്തരിച്ച മുൻ എം പി എം ഐ ഷാനവാസിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണും മറൈൻ ഡ്രൈഡിലെ സമ്മേളനത്തിന് ശേഷം ഗസ്റ്റ് ഹൌസിൽ യു ഡി

വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും മലകയറുന്നതിന് സംരക്ഷണം ആവശ്യപ്പെട്ട് നാല് യുവതികൾ നൽകിയ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനക്ക് വരും കനക ദുർഗയുടെയും ബിന്ദുവിന്റെയും ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും അയോദ്ധ്യാ ഭൂമി തർക്കകേസ് നാളെ പരിഗണിക്കില്ലെന്ന് സുപ്രീംകോടതി അറിയിച്ചു കേസ് പരിഗണിക്കുന്ന അഞ്ചംഗ ബെഞ്ചിലെ ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അവ ധിയിലായതിനെത്തുടർന്നാണ് പരിഗണന മാറ്റിയത് പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല ദക്ഷിണ റെയിൽവേയെ ശുചിത്വത്തിൽ രാജ്യത്തെ മികച്ച റെയിൽവേ സോണായി തെർഞ്ഞെടുത്തു

ഡൽഹി വാരണാസി റൂട്ടിൽ ഉടൻ സർവ്വീസ് തുടങ്ങുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് അതിവേഗ ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പുനർ നാമകരണം ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തു തന്നെ ഈ ട്രെയിൻ സർവ്വീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് റെയിൽവേമന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹിയിൽ അറിയി ച്ചു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ലോകനിലവാരത്തോടെ ട്രെയിനുകൾ നിർമ്മിക്കാനാവുമെന്ന് ഇന്ത്യൻ എഞ്ചിനീ യർമാർ തെളിയിച്ചിരിക്കുകയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു

കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ബൌളർമാരും മികച്ച ഫോമിലായിരുന്നു ദേശീയ പൊലീസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് മല പ്പുറത്ത് തുടങ്ങും

പി മൈതാനം പാണ്ടിക്കാട് എ ആർ ക്യാമ്പ് ക്ലാരി ദ്രുതകർമ്മ സേനാ ക്യാമ്പ് എന്നിവിടങ്ങളിൽ മത്സരിക്കുന്നത്

പിന്നീട് നോക്കൌട്ട് രീതിയിലാണ് മത്സ രങ്ങൾ ഇന്ന് വൈകിട്ട് മലപ്പുറം എം

പി പരേഡ് ഗ്രൌണ്ടിലെ ഉദ്ഘാടന ചടങ്ങിൽ എയർമാർഷൽ മാനവേന്ദ്ര സിംഗ് മുഖ്യാതിഥിയാകും വൈകിട്ട് ഏഴിന് മത്സരങ്ങൾ തുടങ്ങും ഫെബ്രുവരി ഏഴിന് വൈകിട്ട് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡി യത്തിലാണ് ഫൈനൽ ഒളിംപിക്സ് ഉൾപ്പെടെ വേദികളിൽ ഷൂട്ടിംഗിൽ ഇന്ത്യ യ്ക്കുവേണ്ടി മത്സരിക്കാൻ കേരളത്തിന് ഭാവിയിൽ കഴി യുമെന്ന് മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു ചേർത്ത ലയിൽ ആലപ്പുഴ ജില്ലാ റൈഫിൾസ് അസോസിയേഷന്റെ ഷൂട്ടിംഗ് റേഞ്ചിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മാനേജ്മെന്റാണ് ഇതിനായി ഒരേക്കർ സ്ഥലം വിട്ടുകൊടുത്തു

ക്രുനാൽ പാണ്ഡ്യയാണ് കളിയിലെ താരം പരമ്പരയിലെ നാലാം മത്സരം നാളെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കു ന്നതിന്റെ ഭാഗമായി ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കു മെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു

എസ് ആർ ഒയുടെ സഹായത്തോടെ വികസിപ്പിച്ച വാർത്താവി നിമയ ഉപകരണം നാവിക് വിതരണം നീണ്ടകരയിൽ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ ജില്ലകളിലും മാസ്റ്റർ കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു

സമകാലീക രാഷ്ട്രീയത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കേരളീയ സമൂഹം ഓർത്തെടുക്കണമെന്ന് സി

സമൂ ഹത്തെ വിശ്വാസികളും അവിശ്വാസികളുമെന്ന് രണ്ടായി തിരിച്ച് വർഗ്ഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് സംഘപരി വാറും കോൺഗ്രസ്സും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെ ടുത്തി മസ്ക്കറ്റിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരളവിഭാഗം സംഘടിപ്പിച്ച ശ്രീനാരായണഗുരു അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു കോടിയേരി

കോട്ടയം ജില്ലയിലെ കുറവില ങ്ങാട് പഞ്ചായത്തിൽ അക്ഷയ ഊർജ്ജ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ശിശു പരിചരണ കേന്ദ്രം കൊല്ലം സിവിൽ സ്റ്റേഷന് സമീപം മ്പ്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു ശിശു സ്ട്രക്ഷണത്തിൽ മികവ് കാട്ടുന്ന സ്ഥകാര്യ ചികിത്സാ ഹോമുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്നും കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്ന ഹോമുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പുറഞ്ഞു വിഭജനത്തിനുശേഷം ഇന്ത്യയിൽ ശേഷിച്ചത് ജനാധി പതൃത്തിനുവേണ്ടി നിലകൊണ്ടവർ മാത്രമാണെന്നും മത വാദികൾ രാജ്യം വിട്ട് പോയെന്നും ഡോ ശശി തരൂർ എം

മത ത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വരെ തടയാൻ ജനങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് സുന്നി യുവജനസംഘ ത്തിന്റെ മൌലികാവകാശ സംരക്ഷണ സമ്മേളനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു ഡോ

ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ റഷ്യൻ ചിത്രം ദ ലോർഡ് ഈഗിൾ ഡോക്യുമെന്ററി വിഭാഗത്തിൽ കനേ ഡിയൻ ചിത്രം ആൻറോയിസ് ആർക് എന്നിവ അവാർഡിന് അർഹമായി

പി ദേശീയ ജനറൽ സെക്രട്ടറി ടി പി പീതാംബ രൻ മാസ്റ്റർക്ക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ അധിക ചുമതല നൽകി